ശ്രീലങ്കയിൽ ഇ്ന്ന് അർദ്ധരാത്രി മുതൽ അടിയന്തരാവസ്ഥ ഇന്ത്യൻ തീരങ്ങ്ളിലും ജാഗ്രതാ നിർദ്ദേശം

യാത്രക്കാർക്ക് ജീവനക്കാരുടെ മർദ്ദനം കല്ലട ട്രാവൽസിന്റെ പെർമിറ്റ് റദ്ദാക്കി

മൂന്നാം ഘട്ട തെരഞ്ഞെടുപ്പിനുള്ള എല്ലാ ഒരുക്കങ്ങളും പ്ലൂർത്തിയായതായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു കേരള ഇലക്ഷൻ പതിനേഴാം പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ കേരള ജനത വിധിയെഴുതാൻ ഇനി മണിക്കൂറുകൾ മാത്രം

രാവിലെ ഏഴ് മുതൽ വൈകിട്ട് ആറ് വരെയാണ് പോളിംഗ് സമയം

ഏറ്റവും കൂടുതൽ വോട്ടർമാർ മലപ്പുറത്തും കുറവ് വയനാട്ടിലുമാണ്

ഇതിൽ പ്രശ്നസാധ്യതാ ബൂത്തുകളിൽ അധികസുരക്ഷ ഏർപ്പെടുത്തി പോളിങ് സുഗമമാക്കാനുള്ള സുരക്ഷ ക്രമീകരണങ്ങൾ പൂർത്തിയായതായി സംസ്ഥാന പോലീസ് മേധാവി ലോക്നാഥ് ബെഹ്റ അറിയിച്ചു

ഇതുകൂടാതെ അർദ്ധസേന വിഭാഗങ്ങളായ സി

എഫ് ബി

എഫ് സി ഐ എസ്

എല്ലാ ബൂത്തുകളിലും ഹരിതപ്പട്ടം പാലിച്ചുകൊണ്ട് തിരഞ്ഞെടുപ്പ് നടത്താനുള്ള സജ്ജീകരണ്ങ്ങൾ ഒരുക്കിയിട്ടുണ്ട്

ടിക്കറാം മീണ ഇൻട്രോ സംസ്ഥാനത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പിനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായി മുഖ്യതെരഞ്ഞെടുപ്പ് ഓഫീസർ ടിക്കറാം മീണ പറഞ്ഞു

ഇത്തരത്തിൽ ശ്രദ്ധിക്കപ്പെടുന്ന മണ്ഡലങ്ങളിലൂടെ ഒര്ു സഞ്ചാരം

നാളുകൾ നീണ്ട പിരിമുറുക്കത്തിന് വിരമാമിട്ട് ഏറ്റവും ഒടുവിലായി കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച മണ്ഡലമാണ് വയനാട് തങ്ങളുടെ പാർട്ടി അദ്ധ്യക്ഷനെ തന്നെ മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയാക്കിയതോടെ വയനാട് ലോകശ്രദ്ധ പിടിച്ചു പറ്റുകയാണ്

ഡി എഫ് സ്ഥാനാർത്ഥി രാഹുൽഗാന്ധി ഇതിനകം രണ്ട് തവണ മണ്ഡലത്തിൽ വന്നുപോയി ഒരു തവണ സ്വന്തം സഹോദരിയും എ ഐ സി സി സെക്രട്ടറിയുമായ പ്രിയങ്കഗാന്ധിയെ മണ്ഡലത്തിൽ അയച്ചതും ശ്രദ്ധിക്കപ്പെട്ടു ആരൊക്കെ വന്നാലും ജയിക്കാൻ തന്നെയാണ് തങ്ങൾ സ്ഥാനാർത്ഥിയെ നിർത്തിയിരിക്കുന്നതെന്ന് അടിവരയിട്ട് അവകാശപ്പെടുകയാണ് ഇടതുപക്ഷം

ജെ

നയിക്കുന്ന എൻ ഡി എ ഘടകകക്ഷിയായ ബി ഡി ജെ

ഇരുവർക്കും വിജയപ്രതീക്ഷ വച്ചു പുലർത്തുമ്പോൾ മണ്ഡലത്തിലെ പ്രത്യേക സാഹചര്യം തങ്ങൾക്കനുകൂലമാകുമെന്ന വിശ്വാസത്തിലാണ് ബി ജെ

ശബരിമല വിഷയം കൊണ്ട് ശ്രദ്ധ നേടുന്ന മണ്ഡലമാണ് പത്തനംതിട്ട ഇവിടെ എൻ

യ്ക്ക് വേണ്ടി കെ സുരേന്ദ്രനും യു

എഫ് സ്ഥാനാർത്ഥിയായി ആന്റോ ആന്റണിയും എൽ

എഫിന് വേണ്ടി വീണാ ജോർജ്ജും നേർക്ക് നേർ വരുമ്പോൾ പോരാട്ടം തീപാറും

ജെ

മുൻ സംസ്ഥാനൃ അധ്യക്ഷൻ കുമ്മനം രാജശേഖരന്റെ സ്ഥാനാർത്ഥിത്വം കൊണ്ട് ശ്രീദ്ധ് നേടുകയാണ് തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലം പുഎന്നാൽ കഴിഞ്ഞ രണ്ട് തവണയും തന്നെ അനുഗ്രഹിച്ച തിരുവന്ത്പ്പുരത്തുകാർ ഇത്തവണ കേന്ദ്രത്തിൽ ഒരു ഭരണ മാറ്റത്തിനായി കൂടുതൽ ഭൂരിപക്ഷത്തിൽ തന്നെ വിജയിപ്പിക്കുമെന്നാണ് യു ഡി

ഇടതുപക്ഷത്തുനിന്നും സി

യിലെ സി ദിവാകരൻ മത്സരിക്കുന്ന മണ്ഡലത്തിൽ കഴിഞ്ഞ നാളുകളിലെ പ്രചാരണ വിശേഷങ്ങളിൽ നിന്ന് ശക്തി ഉൾക്കൊണ്ട് മണ്ഡലം തങ്ങൾക്കുതന്നെ എന്ന് ഉറപ്പിക്കുകയാണ് എൽ

ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തിരുവനന്തപുരം ജില്ല സമ്പൂർണ സജ്ജമായതായി ജില്ലാ കളക്ടർ ഡോ

എല്ലായിടത്തും സമാധാനപരമായ അന്തരീക്ഷത്തിൽ പോളിംഗ് നടത്താനുള്ള എല്ലാ സംവിധാനങ്ങളും ഏർപ്പെടുത്തിയതായൂം കൂളക്ടർ പറഞ്ഞു

ഇടുക്കി ഇൻട്രോ സംസ്ഥാനത്തെ പ്രഥമ ഗോത്രവർഗ്ഗ പഞ്ചായത്തായ ഇടമലക്കുടിയിലേക്കുള്ള പോളിംഗ് സംഘം മൂന്നാറിൽ നിന്ന് രാവിലെ പത്ത് മണിയോടെ പുറപ്പെട്ടു കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ഇടുക്കി പ്രതിനിധി ആന്റണി മുനിയറ

ഇവിടങ്ങളിലേക്ക് ഉദ്യോഗസ്ഥർ വോട്ടിംഗ് സാമഗ്രികൾ കൈപ്പറ്റുന്ന ജോലികൾ ഏതാണ്ട് പൂർത്തിയായി

വയനാട് നിന്നും ആകാശവാണി പ്രതിനിധി അരുൺ വിൻസന്റ് തയ്യാറാക്കിയ റിപ്പോർട്ട്

അനധികൃതമായി പാഴ്സൽ കടത്തുന്നത് ശ്രദ്ധയിൽപെട്ടതിനെ തുടർന്നാണ് നടപടി

അടൂർ ഏനാത്താണ് സംഭവം എനാത്ത് സ്വദേശി കരുമ്പേലിൽ നാസറിന്റെ മക്കളായ നാസിം അജ്മൽ ഇവരുടെ ബന്ധു നിയാസ് എന്നിവരാണ് മരിച്ചത്